പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള

ശബരിമലയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ

എം ഷാജിക്ക് വരുന്ന നിയമസഭാസമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് സുപ്രീംകോടതി നിരീക്ഷണം വയനാട് എം പി യും കെ

ഐ ഷാനവാസിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കി

ശബരിമലയിൽ നിരോധനാജ്ഞ തുടരേണ്ട സാഹചര്യം ഇല്ലെന്നാണ് തന്റെ അഭിപ്രായമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഭക്തരെ നിയന്ത്രണത്തിന് വിധേയമായി തടയുന്ന നടപടി ഇപ്പോൾ സന്നിധാനത്തില്ല സാമൂഹിക ദ്രോഹികൾക്ക് എതിരായ സക്രിയ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു

പ്രതിഷേധ സാധ്യതകണക്കിലെടുത്ത് യുവമോർച്ചാ ജില്ലാപ്രസി ഡണ്ടടക്കം മൂന്ന് പ്രവർത്തകരെ പോലീസ് നേരത്തെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു ശബരിമലയിൽ നിരോധനാജ്ഞ തുടരേണ്ടതില്ലെന്ന് അറിയിച്ച് റാന്നി തഹസിൽദാർ പത്തനംതിട്ട ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി ശബരിമല പമ്പ നിലയ്ക്കൽ ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് തഹസിൽദാറുടെ റിപ്പോർട്ട് നിയന്ത്രണങ്ങൾ ഭക്തർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായി സൂചനയുണ്ട് നിലവിൽ ശബരിമലയിൽ സംഘർഷാവസ്ഥയില്ലെന്നും റിപ്പോർ ട്ടിൽ വ്യക്തമാക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് പൊലീസിനെ കയറൂരി വിട്ടിരിക്കുക യാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധ രൻപിള്ള കുറ്റപ്പെടുത്തി കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനെതി രായ എസ് പി യതീഷ് ചന്ദ്രയുടെ നടപടിക്കെതിരെ കേന്ദ്രആഭ്യ ന്തര മന്ത്രാലയത്തിന് പരാതി നൽകുമെന്നും അദ്ദേഹം ന്യൂഡൽഹി യിൽ പറഞ്ഞു

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ തിരെ ഗൂഢാലോചന നടക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു ഈശ്വര വിശ്വാസികളല്ലാത്തവരാണ് കേരളം ഭരിക്കുന്നതെന്നും സുപ്രീംകോടതിയോട് ഇരന്നുവാങ്ങിയതാണ് ശബരിമല യുവതി പ്രവേശന വിധിയെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി ശബരിമലയിൽ സംസ്ഥാന ഗവൺമെൻറ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരി ക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ ആരോ പിച്ചു ശബരിമലയെ മനപൂർവ്വം തകർക്കാൻ വേണ്ടി ക്രിമിനൽ പശ്ചാത്തലത്തോടുകൂടിയ പൊലീസ് ഉദ്യോഗസ്ഥരെ ശബരിമല യിൽ നിയോഗിച്ചിരിക്കുന്നത്

എല്ലാ മര്യാദകളും ലംഘിച്ച് അപകടകരമായ സ്ഥിതിയിലാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നതെന്നും ഭക്തരെ അടിച്ചൊതുക്കാനും ഭീഷണിപ്പെടുത്താനും ആണ് അവർ ശ്രമിക്കുന്നതെന്നും രാധാകൃഷ്ണൻ എരുമേലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പമ്പയിൽ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻെറ വാഹനം തടഞ്ഞിട്ടില്ലെന്നും മന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ മറ്റൊരു വാഹനമാണ് തടഞ്ഞതെന്നും സ്പെഷ്യൽ പോലീസ് ഓഫീസർ എസ് പി ഹരിശങ്കർ അറിയിച്ചു

ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരിൽ കുഴപ്പക്കാർ ഉണ്ടോ എന്ന സംശയത്തിലായിരുന്നു നടപടി ഇതുസംബന്ധിച്ച് ക്ഷമാപണമല്ല വിശദീകരണമാണ് കേന്ദ്രമന്ത്രിക്ക് നൽകിയതെന്നും എസ് പി വ്യക്തമാക്കി പൊലീസ് കേന്ദ്രമന്ത്രിയുടെ വാഹനം തടഞ്ഞുവെന്ന നിലയിലായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ മന്ത്രിയുടെ വാഹനം കടന്നുപോയശേഷം അഞ്ച് മിനിറ്റിലേറെ വൈകിയാണ് എറണാകുളം രജിസ്ട്രേഷനോട്കൂടിയ വാഹനം സ്ഥലത്തെത്തിയത് ഈ വിവരം നിലയ്ക്കലിലുണ്ടായിരുന്ന കേന്ദ്ര മന്ത്രിയെ നേരിട്ട് ധരിപ്പിച്ച് പരിശോധനാറിപ്പോർട്ടിന്റെ കോപ്പി അദ്ദേ ഹത്തിന് കൈമാറിയതായി എസ് പി ഹരിശങ്കർ വെളിപ്പെടുത്തി പൊലീസ് ക്ഷമാപണം എഴുതി നൽകിയെന്നായിരുന്നു ആദ്യ വിവ രം കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണന്റെ വാഹനവ്യൂഹം പമ്പയിൽ പൊലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ച് നാളെ കന്യാകുമാരി ജില്ല യിൽ ബി

പി ബന്ദിന് ആഹ്വാനം ചെയ്തു കാലത്ത് ആറുമു തൽ വൈകിട്ട് ആറുമണി വരെ നടക്കുന്ന ബന്ദിൽ വാഹനങ്ങൾ തടയില്ലെന്നാണ് റിപ്പോർട്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട മേൽശാന്തിയെ സസ്പെൻഡ് ചെയ്തു മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാസർഗോഡ് മഡിയൻ കുലോം ക്ഷേത്രത്തിലെ മേൽശാന്തി മാധവൻ നമ്പൂതിരിയെയാണ് സസ്പെൻഡ് ചെയ്തത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മന്ത്രിക്കെതിരേ മേൽശാന്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്

മലപ്പുറം കാക്കഞ്ചേരി സ്വദേശി അപർണ ശിവകാമിയുടെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത് ബൈക്കിലെത്തിയ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു ശബരിമലയിൽ പോകാൻ താത്പര്യമുണ്ടെന്ന് അപർണ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളന ത്തിൽ പറഞ്ഞിരുന്നു ഹൈക്കോടതി അയോഗ്യ നാക്കിയ അഴീ ക്കോട് എം

എന്നാൽ എം

അയോഗ്യത ഉത്തരവിന് ഹൈക്കോടതി അനുവദിച്ച സ്റ്റേ നാളെ അവസാനിക്കാനിരിക്കെയാണ് ഷാജി ഹർജി വേഗം പരിഗണിക്കണമെന്ന അപേക്ഷ നൽകിയത് ഹൈക്കോടതി ഷാജിയെ ആറ് വർഷത്തേക്ക് തെരഞ്ഞെടു പ്പിൽ നിന്ന് വിലക്കിയിരുന്നു ഇതിന് ഹൈക്കോടതിയ്ക്ക് അധി കാരമില്ലെന്നും അയോഗ്യതയിൽ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്ര പതിയാണെന്നും ഹർജിയിൽ ഷാജി അറിയിച്ചു കാൻസർ രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളജിൽ ഒരുക്കിയ ത്രിതല കാൻസർ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജ യൻ മറ്റന്നാൾ രാവിലെ ഉദ്ഘാടനം ചെയ്യും

കാർഷിക വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണമടക്കം അഞ്ച് സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പു വെച്ചു ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും തമ്മിൽ സിഡ്നിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പരസ്പര സഹകരണത്തിനുള്ള കരാറിൽ ഒപ്പുവെച്ചത്

ജമ്മുകശ്മീരിനെ കുത്തഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് രക്ഷി ക്കാനും കുതിരക്കച്ചവടം തടയാനുമാണ് നിയമസഭ പിരിച്ചുവിട്ട തെന്ന് ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞു സംസ്ഥാനത്ത് പ്രായോഗികമല്ലാത്ത സഖ്യത്തിന് ഗവൺമെന്റുണ്ടാക്കാൻ അവ സരം നൽകില്ല തന്റെ തീരുമാനം ചോദ്യം ചെയ്യണമെന്നുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും അദ്ദേഹം വൃക്തമാക്കി

വയനാട് എംപിയും കെപിസിസി വർക്കിംഗ് പ്രസിഡൻറുമായിരുന്ന എം ഐ ഷാനവാസിന് കണ്ണീരോടെ നാടിന്റെ വിട മൂന്നര പതിറ്റാണ്ടിലെറെ രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു എം

ഷാനവാസിൻെറ മൃതദേഹം എറണാകുളം കലൂർ തോട്ടത്തുംപടി മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കെപിസിസി പ്രസിഡൻറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരടക്കം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിരവധിപേർ ചടങ്ങിൽ പങ്കെടുത്തു കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയധായി ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെ രണ്ടിന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഷാനവാസിൻെറ അന്ത്യം കൊച്ചിയിലെ വസതിയിലും ടൌൺ ഹാളിലും പൊതു ദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്തിമോപചാ രമർപ്പിച്ചത്

നാളെ രാവിലെ മുതൽ കണ്ണൂർ ഗവൺമെന്റ് മുൻസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും കണ്ണൂർ നഗരത്തിലെ വിവിധ വേദികളിലായാണ് ശാസ്ത്രോത്സവം നടക്കുകയെന്നും മന്ത്രി അറിയിച്ചു ഇന്ധനവിലയിൽ വീണ്ടും കുറവ്

ആദ്യ സെമിയിൽ വെസ്റ്റ്ഇൻഡീസും ആസ്ട്രേലിയയും തമ്മിലാണ് മത്സരം

വൈകീട്ട് ഏഴരയ്ക്ക് ഗോവ ജവഹർലാൽനെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം

പ്രളയത്തെ തുടർന്ന് മാറ്റിവെച്ച കാസർകോട് കിനാനൂർ കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളജിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച നിർവഹിക്കും

കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനക്ഷമമാകുന്നതോടെ ജില്ല യിലെ വിനോദ സഞ്ചാരമേഖലയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ കൂടു തൽ പ്രാധാനൃം നൽകണമെന്ന് ജില്ലാപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയോഗം ആവശ്യപ്പെട്ടു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യു ന്നതോടെ കൂടുതൽ ആളുകൾ ജില്ലയിലെ വിനോദ സഞ്ചാരകേ ന്ദ്രങ്ങളിൽ എത്തിച്ചേരുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു

വ്യാപാരി ഹർത്താൽമൂലം ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നത് കലാമേളയിൽ പങ്കെടുക്കാ നെത്തിയ വിദ്യാർത്ഥികളെ വലച്ചു കല്ലോട് മേഖലയിൽ ബി

പി യും ഹർത്താൽ നടത്തുക യാണ് യുഡിഎഫിന് അധികാരം ലഭിച്ച മുക്കം സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ സിപിഎം ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കോഴിക്കോട് മുക്കം നഗരസഭയിൽ യുഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു

ഹൈക്കോടതിയിലെ ജുഡീഷ്യൽ രജിസ്ട്രാർ ജയശ്രീ വൈഭവ് ജയപ്രകാശിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി